ചേരുമെന്ന് പ്രസിഡന്റ് മൈത്രിപാലാ സിരിസേന

നിർണായക പോരാട്ടം തിരുവനന്തപുരത്ത് അൽപസമയത്തിനകം ആരംഭിക്കും

ഹാപ്പത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഛത്തീസ്ഗ്രിഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നു രാവിലെ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായി സംഘം കൂടിക്കാഴ്ച നടത്തി ഉച്ച തിരിഞ്ഞ് ജില്ലാ ത്തരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഐ ജി ഡി ഐ

സംസ്ഥാന പോലീസ് മേധ്യാവിമാരുമായും അർധ സേനാവിഭാഗം തലവൻമാരുമായും ചർച്ച് നടത്തി സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്തും

പത്രിക പിൻവലിക്കാനുള്ള അവസാനദിനം തിങ്കളാഴ്ചയാണ്

അതേ സമയം മധ്യപ്രദേശ് മിസോറാം നിയമസഭ തെരഞ്ഞെടുപ്പുകൾക്കായുള്ള വിജ്ഞാപനം നാളെ പുറപ്പെടുവിക്കും

ഗുവാഹത്തിൽ ഇന്നലെ ചേർന്ന പാർട്ടി ജനറൽ കൌൺസിൽ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത്

നിർമ്മാണ് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് കാസ്കീര്യംഗട്ടെ റെയിൽവെ ശൃംഖലയുമായി ബന്ധിപ്പിക്കാനും ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നുണ്ടെന്നും ശ്രീ

അസമിന്റെ വിനോദ സെഞ്ചാ്രമേഖലയിൽ ഈ പദ്ധതി വൻ മുന്നേറ്റം സൃഷ്ടിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു

ഇവരെ തിരിച്ചറിഞ്ഞിട്ടില്ല ബുദ്ഗാം ജില്ലയിലെ സുഗോ അരിസൽ മേഖലയിൽ ഇന്ന് പുലർച്ചയാണ് ഏറ്റുമുട്ടലുണ്ടായത് തീവ്രവാദികൾ ഒളിച്ചിരിക്കുന്നുവെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് സുരക്ഷാ സേന തെരച്ചിൽ നടത്തുകയായിരുന്നു ഭീകരർ തെരച്ചിലിനിടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണ് ഏറ്റുമുട്ടലിൽ സൈനികർക്ക് പരിക്കേറ്റിട്ടില്ല

വിനോദ സഞ്ചാരമേഖലയിലെ ഉഭയകക്ഷി സഹകരണം വികസിപ്പിക്കുകയാണ് ധാരണാപത്രത്തിന്റെ പ്രധാന ലക്ഷ്യം ഗതാഗതം വിദ്യാഭ്യാസം എന്നീ മേഖലകളിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒപ്പുവെച്ച ധാരണാപത്രത്തിനും മന്ത്രിസഭ അംഗീകാരം നൽകി അന്താരാഷ്ട്ര സൌരോർജ്ജ സഖ്യത്തിന്റെ ആദ്യ സമ്മേളത്തിലെ പ്രമേയത്തിനും മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചു

ഈ സംസ്ഥാനങ്ങളിലെ എല്ലാ ജനങ്ങൾക്കും പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ട്വിറ്ററിലൂടെ ആശംസങ്ങൾ നേർന്നു ഏവർക്കൂം അഭിവൃദ്ധിയും വികസനവും ഉണ്ടാകട്ടേയെന്ന് അദ്ദേഹം ആശ്രംസിച്ചു

പ്രളയ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷ പരിപാടികൾ ഒഴിവാക്കിയിട്ടുണ്ട് നവകേരള നിർമ്മാണം സാധ്യമാവുന്ന വികസനമാണ് ലക്ഷ്യമിടുന്നത് സമസ്ത മേഖലയിലും പുരോഗതി ലക്ഷ്യമിട്ട് തകർന്ന കേരളത്തെ കൈ പിടിച്ചുയർത്തുന്ന പദ്ധതികൾക്കാണ് മുൻ തൂക്കം നൽകിയിട്ടുള്ളത് പ്രകൃതിക്ക് ദോഷമുണ്ടാക്കത്ത തരത്തിൽ പുതിയ പദ്ധതികളും പുതിയ ആശയങ്ങളും നടപ്പാക്കാനാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത്

സിബിഐയും എൻഫോഴ്സ്മെന്റ് ഡയറക്ട്രേറ്റുമാണ് ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സമയപരിധിക്കുള്ളിൽ നടപടി ക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ടെന്ന് സിബിഐയ്ക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ട്രേറ്റിനും വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ തുഷാർ മെഹ്ത കോടതിയെ അറിയിച്ചു അന്വേഷണവുമായി ശ്രീ

തീരുമാനം പ്രസിഡന്റ് അറിയിച്ചതായി പുതുതായി നിയമിതനായ പ്രധാനമന്ത്രി മഹീന്ദ രാജപക്സെ അറിയിച്ചു ആദ്യ ദിനം പ്രസിഡന്റിന്റെ ആചാരപരമായ അഭിസ്കുബോധനയ്ക്കുശേഷം തുടർ സംവാദങ്ങൾക്കായുള്ള് തീയതി പാർട്ടി നേതാക്കൾ തീരുമാനിക്കും

സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് ഗവൺമെന്റ് പ്രതിജ്ഞാ ബദ്ധമാണെന്ന് പ്രധാനമന്ത്രി ടിറ്ററിൽ കുറിച്ചു വ്യവസായം നിക്ഷേപം തുടങ്ങിയ കാര്യങ്ങളിൽ അവസ്സർം ഉറപ്പു വരുത്തുമെന്നും അദ്ദേഹം ട്വിറ്ററിൽ കൂറിച്ചു

ചൈനയും പാക്കിസ്ഥാനും തമ്മിൽ ഒപ്പൂ വച്ചിരിക്കുന്ന അതിർത്തി ഉടമ്പടി നിയമവിരുദ്ധവും അസാധുവുമാണെന്ന് ഇന്ത്യ ഉറച്ച് വിശ്വസിക്കുന്നതായും വിദേശ കാര്യ മന്ത്രാലയ വക്താവ് രവീഷ് കുമാർ പ്രസ്താവനയിലൂടെ അറിയിച്ചു ഇന്ത്യ ഈ കരാർ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല പാക് അധീന കശ്മീരിലൂടെയുള്ള ഏതൊരു ബസ്റ്റ് സർവ്വീസും ഇന്ത്യയുടെ പരമാധികാരത്തെ ഹനിക്കുന്നതായിരിക്കുമെന്നും ശ്രീ

അധിക വരുമാനത്തിലൂടെ റെയിൽവേ യാത്രികരുടെ സൌകര്യം വർദ്ധിപ്പിക്കുകയെന്നതാണ് ലക്ഷ്യം

അതേ സമയം ഭക്ഷ്യധാനൃങ്ങൾ ധാന്യപ്പൊടികൾ പയറുവർഗ്ഗങ്ങൾ വളം ഉപ്പ് പഞ്ചസാര എന്നിവയുടെ ചരക്ക് നീക്കത്തിൽ നിരക്ക് വർദ്ധനവുണ്ടാകില്ല

പരമ്പര സ്ട്ര്യമാക്കാൻ ഇന്ത്യയും സമനില മോഹിച്ച് വിന്റീസും കളിക്കളത്തിലിമ്പോൾ മത്സരം തീപാറുമെന്ന പ്രതീക്ഷയിലാണ് ക്രിക്കറ്റ് പ്രേമികൾ എന്നാൽ ആവേശം തണുപ്പിച്ച് തലസ്ഥാനത്ത് ചെറിയ തോതിൽ മഴ പെയ്തേക്കുമെങ്കിലും കനത്ത മഴയ്ക്ക് സാധ്യതയില്ലെന്ന റിപ്പോർട്ട്

അല്പസമയത്തിനകം ആരംഭിക്കുന്ന ക്രിക്കറ്റ് മത്സരത്തിനായി വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് തലസ്ഥാനത്ത് ഒരുക്കിയിരിക്കുന്നത് തിരുവനന്തപുരം റെയ്ഞ്ച് ഐ

ഇന്ത്യ പനോരമ വിഭാഗം ജൂറിയാണ് ചിത്രം തെരഞ്ഞടുത്ത്